കേരളത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്രസയിലിരുന്ന ഒരാൾ മരിച്ചു

ഓപ്പറേഷൻ സമുദ്ര സ്ഫേത്യുവിന്റെ ഭാഗമായി ഐ

എസ്

കരസേനാ മേധാവി ലഡാക്കിലേക്ക്

ജമ്മുകശ്മീരിൽ ഏറ്റുമുട്ടലിൽ ജവാന് വീരമൃത്യു

വധിച്ചു

കോവിഡ് വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി

പരമേശ്വരൻ

കൊല്ലം മയ്യനാട് സ്വദേശി വസന്തകുമാറാണ് കോവിഡ് മരിച്ചത്

പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊറോണ വൈറസ് ബാധിച്ച് ചികിത്സയിലായിരുന്നു ന്യുമോണിയ ബാധിതനായിരുന്ന ഇദ്ദേഹത്തിന് ഇന്നലെ രാത്രി ഹൃദയാഘാതം ഉണ്ടായി

ആർ

കൂടുതൽ വിവരങ്ങളുമായി ജയലക്ഷ്മി

എന്നാൽ ആഗോള തലത്തിൽ ഇന്ത്യയിലെ നിരക്കിനെക്കാൾ മൂന്നിരട്ടിയാണ് രോഗബാധിതർ

മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കോവിഡ് പ്രതിരോധം മികച്ച നിലയിലാണ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടു പോകുന്നതെന്ന് എയിംസ് ഡയറക്ടർ ഡോ

ചില രാജ്യങ്ങൾ കോവിഡ് വ്യാപനം പ്രത്യുട്രുന്ന സാഹചര്യത്തിൽ പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുണ്ടെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചുണ്ട്

ഷാർജ ഫിലിപ്പെയ്ൻസ് മസ്ക്കറ്റ് ദോഹ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് പ്രവാസികൾ എത്തിയത്

മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ശ്രീ നരവാനെ അതിർത്തി പ്രദേശങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന സൈനിക വിഭാഗങ്ങളുടെ മേധാവികളുമായി ആശയവിനിമയം നടത്തും അതിർത്തിയിലെ വിവിധ പ്രദേശങ്ങളിൽ ശ്രീ

റഷ്യൻ മേജർ ജനറൽ കൊസ്നെകോ വാസിലി അലക്സാണ്ട്രോ വിച്ചും റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വെങ്കിടേഷ് വർമ്മയും ചേർന്നാണ് അദ്ദേഹത്തെ ഇന്നലെ സ്വീകരിച്ചത്

റ്റ്ഷ്യൻ വിദേശകാരൃ മന്ത്രി സർജി ലാവ്റൊ അധ്യക്ഷത വഹിക്കുർന്ന ചർച്ചയിൽ വിദേശകാര്യ മന്ത്രി എസ്

ഗാൽവാൻ താഴ്വരയിലെ നിലവിലെ സ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ ത്രികക്ഷി ചർച്ചയ്ക്ക് പ്രാധാന്യമേറുന്നു

ഒരു സി ആർ

എഫ്

എഫ്

കോവിഡ് പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് പ്രദക്ഷിണം നടക്കുന്നത്